കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന് മൻകി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ദൂരിതം വിതച്ച് ന് മഴ തുടരുന്നു

ഇന്ത്യയുടെ സൌരഭ് വർമ്മയ്ക്ക്

ശാന്തവു്ം ഉറച്ചതുമായ മനസ്സോടെ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് അതിനായി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും പ്രധാ നമന്ത്രി പറഞ്ഞു ശാന്തതോടെ ജീവിതം ആസ്വദിക്കുകയും ജീവിതത്തിൽ അന്തരാത്മാവിന്റെ ആനന്ദം അറിയുകയും ചെയ്യണം

പഠിക്കുകയല്ലാതെ വേറെ വഴിയില്ല പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള നേടിയെടുക്കണമെന്നും അദ്ദേഹം ശീലം ഉദ്ബോധിപ്പിച്ചു ഉത്സവങ്ങൾ ജാതി മത ബാധകൾ ഇല്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഗണേശോത്സവം പരമ്പരാഗതമായ ബഹു മാനത്തോടും ഉത്സാഹമായും ആഘോഷിക്കുന്നതിനൊപ്പം സാമൂഹിക ഉണർവ് സാമൂഹൃബോധം ആളുകളിൽ സമരസത സമത്വം ഒക്കെ വളർത്താനുള്ള ശക്തമായ മാധ്യമമായി മാറിയിരുന്നു കാലം ചെന്നതിനനുസരിച്ച് ആഘോഷങ്ങൾക്ക് ജനസമ്മതി ഏറിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു

യുവാക്കൾക്ക് ്നേതൃത്വം സംഘടനാബോധം എന്നിവയെക്കുറിച്ചു പ്പിക്കാനും അതിനുള്ള കഴിവ് വികസിപ്പിക്കാനുമുള്ള ഒരും നല്ല അവസരമാണ് ആഘോഷങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണത്തിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ ലഖ്നൌവ് സന്ദർശനം ഇന്ന് സമാപിക്കും

തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതും ഉപമുഖ്യമന്ത്രി ഒ

സ്വാമിനാഥൻ ഫൌണ്ടേഷന്റെ ചടങ്ങിലും ഓഫ്താൽമോളജി സെമിനാറിലും പങ്കെടുത്തശേഷം മുൻ ് മുഖ്യമന്ത്രിയും ഡി

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും സംഭവത്തിൽ അനുശോചിച്ചു

ഡപ്പോളി പട്ടണത്തിലെ കൊങ്കൺ കൃഷി വിദ്യാപീഠത്തിലെ ജീവനക്കാരാണ് ബസിൽ ഉണ്ടായിരുന്നത്

മറ്റൊരാൾക്ക് പരിക്കേറ്റു

മൂധ്യൂപദേശിൽ വനംവകുപ്പ് ചുമർചിത്ര മത്സരം സംഘടിപ്പിച്ചാണ് പ്രിക്ടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്കെത്തിക്ക്ട്രിൻ ശ്രമിക്കുന്നത്

വിശദ വിവരങ്ങളുമായി വീണാ മുകുന്ദൻ വോയിസ് അസം ഗുജറാത്ത് കേരള മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മഴ ഗുരുതരമായി ബാധിച്ചത്

കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഉത്തർപ്രദേശിൽ മഴ തുടരുകയാണ് ദുരിതബാധിതർക്ക് എത്രയുംവേഗം സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടാവശൃപ്പെട്ടിട്ടുണ്ട്

കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഹത്നി കുണ്ഡ് അണക്കെട്ടിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനാൽ ഇന്നു വൈകുന്നേരത്തോടെ നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്

നാളെയാണ് പൌരത്വ രജിസ്ട്രേഷന്റെ കരട് പ്രകാശനം ചെയ്യുന്നത്

ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ് ഭൂകമ്പ വാർത്ത പുറത്തുവിട്ടത്

കാട്ടുതീ അണ്ടിയ്ക്കാനെത്തിയ രണ്ടു സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മരിക്കുകയുണ്ടായി

ജനവികാരത്തിന്റെ ഭരണത്തിലിരിക്കുന്ന കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയും എതിരാളിയായ കംബോഡിയ നാഷണൽ റെസ്ക്യൂ പാർട്ടിയുമാണ് മത്സര രംഗത്തുള്ളത്

സൌരഭിന്റെ ഈ സീസണിലെ ആദ്യ കിരീടമാണിത്